കോവിഡ് പ്രതിരോധ സഹകരണവും പ്രക്യർച്ചവ്യാധിയെ ചെറുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളും ഉച്ചക്ടോടിയിൽ ചർച്ചയാകും

കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് അനിവാര്യമാണെന്നും ആരോഗ്യ മന്ത്രാല്യ്യം വൃക്തമാക്കി

രാജ്യത്തു കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്താൻ സംസ്ഥാനങ്ങളുമായി കൈകോർത്ത് വിവിധ നടപടികളാണ് കേന്ദ്രം സ്വീകരിച്ചത്

സർക്കാരിന്റെ ശ്രമങ്ങളിള് പിന്തുണയ്ക്കുന്നതിന് പല രാജ്യങ്ങളും സഹായഹസ്തും വ്യൂഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം വൃക്തമാക്കി

കോവിഡ് ദൂരിതാശ്വാസ സാമഗ്രികൾ ധന സഹായം സംഭാവന എന്നിവ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു സെൽ രൂപീകരിച്ചിട്ടുണ്ട്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എറണാകുളം ജില്ലയിൽ കോവിഡ് കേസുകൾ ഇന്നും അയ്യായിരം കടന്നു

പ്രതിസന്ധി ഘട്ടത്തില്ലീ ആരോഗൃപ്രവർത്തകരുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

രോഗം നിയന്ത്രണാതീതമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകുക എന്നത് അനിവാര്യമാണ് സംസ്ഥാനത്ത് കൂടുതൽ വാക്സിൻ ഡോസുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വൃക്തമാക്കി

ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റെംഡെസിവിറിന്റെ ഉൽപാദന ശേഷിയുടെ മൂന്നിരട്ടിയാണ് ഇന്തൃ കൈവരിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു മരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ആവശ്യം വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെംഡെസിവിർ ഉത്പാദിപ്പിക്കുന്ന പ്താന്റുകളുടെ എണ്ണം വർധിപ്പിച്ചതായും ശ്രീ മാണ്ഡവൃപ്പുവൃക്തമാക്കി

കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കര കയറാൻ ഇതിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഇ ഇ മെയിൻ പരീക്ഷ കോവിഡ് സാഹചരൃം കണക്കിലെടുത്ത് മാറ്റിവെച്ചു

കോവിഡ് വ്യാപനവും കുട്ടികളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് ട്വീറ്റ് ചെയ്തു പുതുക്കിയ തീയതി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

പരീക്ഷയുടെ പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും

ഡൽഹിയിലെ ഇന്ത്യൻ ഓയിലിന്റെ ടിക്കരി കലാം ടെർമിനലിൽ നിന്നായിരുന്നു ഫ്ളാഗ് ഓഫ്

കോവിഡ് മഹാമാരിയുടെ വെല്ലുവിളികൾക്കിടയിലും ഇത്തരം ഇന്ധന ലൈനുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഇന്ധന വൃവസായ മേഖല മികച്ച പങ്ക് വഹിച്ചതായി ശ്രീ പ്രധാൻ ്ട്ര പറഞ്ഞു

ഏതൊക്കെ നേതാക്കളെ മന്ത്രിമാർ ആകണം എന്നത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു

പുതിയ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനം ആയാൽ ഏതാനും ദിവസങ്ങൾക്കകം സത്യപ്രതിജ്ഞ തീയതി സംബന്ധിച്ചും തീരുമാനമുണ്ടാകും

ഇതാദ്യമായാണ് ബിജെപി പുതുച്ചേരി സർക്കാരിന്റെ ഭാഗമാകുന്നത്

ബിജെപി ഒരിക്കലും അധ്നിക്ടാരത്തിൽ വരില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി ആണിതെന്നു് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എൻ ആർ ക്രോൺഗ്ഗസ് നേതാവ് എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ ്യ്യോ ്തമിഴിസൈ സൌന്ദരരാജനെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു

കോവിഡ് സാഹചര്യം മുൻനിർത്തി പരിമിതമായ സദസിന്റെ സാന്നിദ്ധ്യത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക മമത ബാനർജിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചതായി ഗവർണറുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു

സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വനിതാ കമ്മീഷന്റെ ഒരും സംഘം നാളെ പശ്ചിമ ബംഗാൾ സന്ദർശിക്കും

ഐപിഎൽ ഭരണസമിതിയും ബിസിസിഐ യും അടിയന്തിരമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം